ഇ ഗോപാല ആപ്പും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

സമ്പർക്ക രോഗികളുടേയും ഉറവിടമറിയാത്ത രോഗികളുടേയും എണ്ണത്തിലും വർധന

കെ ശശീന്ദ്രൻ

കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജനക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡിജിറ്റലായി തുടക്കം കുറിക്കും കർഷകർക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന സമഗ്രമായ ബ്രീഡ് ഇംപ്രൂവ്മെന്റ് വിപണന കേന്ദ്രമായ ഇ ഗോപാല ആപ്പും ഇൻഫർമേഷൻ പോർട്ടലും പ്രധാനമന്ത്രി ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും ബീഹാറിലെ മത്സ്യബന്ധന മൃഗ സംരക്ഷണ മേഖലകളിലെ നിരവധി സംരംഭങ്ങൾക്കും മോദി തുടക്കം കുറിക്കും

കന്നുകാലി കർഷകർക്ക് ഗുണനിലവാരമുള്ള ബ്രീഡിങ് സേവനങ്ങളുടെ ലഭ്യത വിവിധ ഗവൺമെന്റ് പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾലഭ്യമാക്കുന്നതാണ് ഇ ഗോപാല ആപ്പ്

സമ്പർക്ക രോഗികളുടേയും ഉറവിടമറിയാത്ത രോഗികളുടേയും എണ്ണവും സംസ്ഥാനത്ത് വൻതോതിൽ ഉയരുകയാണ്

രദേ കോവിഡിനെ തുടർന്ന് അടഞ്ഞുകിടന്ന സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തിങ്കളാഴ്ച മുതൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയതായി മന്ത്രി എ

സ്കൂളുകൾ തുറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് സ്ഥാപനങ്ങളും വാഹനങ്ങളും അണുവിമുക്തമാക്കണം ഒരുസമയം ഒരാളെ മാത്രമേ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ പാടുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു രുമ കൊവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് രോഗവ്യാപനത്തിന് സാഹചര്യമൊരുക്കുമെന്നതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കണ്ണൂരിൽ നടന്ന കോവിഡ് അവലോകന യോഗം അഭ്യർത്ഥിച്ചു ജില്ലയിൽ സമീപ ദിവസങ്ങളിലായി രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടാകുന്നുണ്ട്

സമ്പർക്കത്തിലൂടെ രോഗ വ്യാപനം ഇല്ലാതാക്കുന്നതിനായി ജനങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത തുടരണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരായ ഇ പി ജയരാജനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പറഞ്ഞു രുമ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളജിൽ രോഗികൾക്ക് ഡോക്ടർമാരുമായി ഫോണിലൂടെ ചികിത്സ തേടുന്നതിന് ടെലിമെഡിസിൻ സൌകര്യമൊരുക്കി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ രോഗികൾക്ക് ആശുപത്രിയിൽ നേരിട്ടെത്തി ചികിത്സ തേടാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത് രേര ഇന്ന് ശ്രീകൃഷ്ണജയന്തി ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണന്റെ ജന്മദിനം ഭക്തിയുടെയും പ്രണയത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതിരൂപമായ കണ്ണന്റെ ജന്മദിനം കൃഷ്ണാഷ്ടമി ജന്മാഷ്ടമി ഗോകുലാഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കൊവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷം വീടുകളിലൊതുങ്ങും

നും ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആയിരം പേർക്ക് ഇന്നുമുതൽ ഗുരുവായൂരിൽ ദർശന സൌകര്യം ഒരുക്കും

വെങ്കയ്യനായിഡു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ ജന്മാഷ്ടമി സന്ദേശം നൽകും

ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രാൻസ് സായുധ സേനാ മന്ത്രി ഫ്ലോറൻസ് പാർലിയും മുഖ്യാതിഥികളാകും

നാല് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

പാത്രക്കടവ് കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങിയ കാടാമ്പുഴ സ്വദേശികളായ മുഹമ്മദലി ഇർഫാൻ എന്നിവരെയാണ് കാണാതായത് ഇവർക്കായി തിരച്ചിൽ തുടരുന്നു മണ്ണാർക്കാട് മേഖലയിൽ കനത്ത മഴയെത്തുടർന്ന് കുന്തിപ്പുഴയിൽ ഒഴുക്ക് വർധിച്ചിരുന്നു

പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പലയിടത്തും വെള്ളം കയറി മീൻവല്ലം പുഴ കരകവിഞ്ഞു

ദേഴ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു

തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റാമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് മാറ്റുന്നതിനെ അനുകൂലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ പ്രതികരിച്ചിരുന്നു

രുര കാസർകോട് ചെറുവത്തൂർ ഫാഷൻ ഗോൾഡ് ജൂവലറിയുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ആണ് കേസ് അന്വേഷിക്കുന്നത് രുമ ഇന്ന് ആത്മഹത്യാ പ്രതിരോധദിനം ആത്മഹത്യ പ്രവണത തടയാൻ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോയെയാണ് ലോകാരോഗ്യ സംഘടനയും ആത്മഹത്യാ പ്രതിരോധ രാജ്യാന്തര സംഘടനയും ചേർന്ന് സെപ്തംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നത്

ലോകത്ത് എട്ട് ലക്ഷത്തോളം ആളുകൾ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്

സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷൻമാരിൽ ആത്മഹത്യാനിരക്ക് നാല് മടങ്ങ് അധികമാണ് അതേസമയം ആത്മഹത്യാ പ്രവണത കൂടുതലും സ്തീകളിലാണ് രുമ കൊല്ലം റൂറൽ പൊലീസ് പരിധിയിൽ പുതിയ വനിതാ പൊലിസ് സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജില്ലയിലെ റൂറൽ കമാന്റ് സെന്ററിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രുമ ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യം പൂർത്തിയാകുന്നതായി മന്ത്രി എ

വയനാട് ജില്ലയിലെ ഭൂരഹിത പട്ടിക വർഗ്ഗ കുടുംബങ്ങളുടെ വിവിധ പുനരധിവാസ പുനരുജ്ജീവന പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി പതിനായിരത്തോളം ആദിവാസികൾക്ക് ഭൂമിനൽകാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു രുമ സംസ്ഥാനത്തെ അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ

കണ്ണൂർ ജില്ലയിലെ കതിരൂർ മൊകേരി പന്ന്യന്നൂർ പഞ്ചായത്തുകളിലെ അങ്കണവാടി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി രുഭ ഇടുക്കി പാഞ്ചാലിമേട് ടൂറിസം കേന്ദ്രത്തിന്റെ രണ്ടാംഘട്ട വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെയും വിനോദ സഞ്ചാര വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് രാമ തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് ജനശതാബ്ദി ട്രെയിനുകളും വേണാട് എക്സ്പ്രസും നിർത്താനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ട്രെയിൻ സർവ്വീസ് തുടരണമെന്നും ആവശ്യപ്പെട്ട് എൻ

പ്രേമചന്ദ്രൻ എം